പുതിയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമ്പൂർയി ഗവേഷണത്തിനും നൂതന ആവിഷ്കാരങ്ങൾക്കും കേന്ദ്രം കൂടുതൽ തുക ചെലവിടുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ

മരണനിരക്ക്

ഭീകരതയെ ചെറുക്കാനും പരാജയപ്പെടുത്താനുമുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ

അധ്യാപക ദിനമായ ഇന്ന് ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് വെർചലായി പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി സ്കൂളുകളിലെ മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യത്തേക്കാൾ പ്രധാനം അധ്യാപകരുടെ അർപ്പണ ബോധമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുത്തുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തവും ഉണ്ടാകണം

വിദ്യാഭ്യാസ മന്ത്രി രമ്മേൾപൊഖ്രിയാൽ നിഷാങ്ക് സഹമന്ത്രി സഞ്ജയ് ധ്യോഖ്ത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു

് എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷിക ദിനവും അധ്യാപകദിനവുമായ ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അദ്ദേഹത്തിന് ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു രാജ്യത്തൊട്ടാകെയുള്ള അധ്യാപകർക്ക് രാഷ്ട്രനേതാക്കൾ ആശംസകൾ നേർന്നു അധ്യാപകരുടെ ആത്മസമർപ്പണത്തി നും നിസ്വാർത്ഥ സേവനത്തിനും ഉപരാഷ്ട്രപതി നന്ദി അർപ്പിച്ചു മികച്ച രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനു കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകരോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ടിറ്ററിൽ കുറിച്ചു

അധ്യാപകദിനത്തിൽ മുംബൈ യിലെ പാർലെ തിലക് വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷ ങ്ങളിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി സംസാരിക്കു കയായിരുന്നു അദ്ദേഹം ഗവേഷണത്തിനുള്ള ഫണ്ട് വർധിപ്പി ക്കാനും പുരോഗതി കൈവരിക്കാനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ജിഡിപിയുടെ ഒരുശതമാന ത്തിൽ താഴെയാണ് ഇന്തൃ ഗവേഷണത്തിനായി ചെലവഴിക്കു ന്നതെന്നും മറ്റ് രാജ്യങ്ങളിൽ ഇത് മൂന്ന്ു ശതമാനം വരെയാണെ ന്നും മന്ത്രി പറഞ്ഞു

ശാസ്ത്രീയ വീക്ഷണമാണ് നയത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്നലെ മോസ്കോയിൽ ചേർന്ന ഷാങ്ഹായ് സഹകരണ സംഘടന യോഗത്തിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യ ചൈന അതിർത്തി വിഷയത്തിൽ ഇന്ത്യൻ സൈന്യം ഉത്തരവാദിത്തപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശദാംശങ്ങളുമായി സുരേഷ്

ഏതാനും മാസങ്ങളായി അതിർത്തി പ്രദേശങ്ങളിലെ ഗാൽവാൻ താഴ്വരയുൾപ്പെടെയുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് ശ്രീ രാജ്നാഥ് സിങ്ങ് വ്യക്തമായി അറിയിച്ചു

അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടത് ഉഭയകക്ഷി ബന്ധ ത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും അഭിപ്രായവൃത്യാസ ങ്ങൾ തർക്കങ്ങളാകാൻ ഇരുപക്ഷവും അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ ഉണ്ടാക്കിയ സമവായം ഇരുപക്ഷവും കൃത്യമായി നടപ്പാക്കണങ്കുന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു

ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് ത്രിദിന സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി മോസ്കോയിൽ എത്തിയത്

പ്രദേശികമായ അസമത്വം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി

കർഷകർക്ക് സൌരോർജ്ജ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും ബയോഗ്യാസ് പ്താന്റുകൾ സ്ഥാപിക്കാനും വായ്പ നൽകും

സമൂഹത്തിലെ സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്ക് ബാങ്കുകൾ നിർബന്ധമായിനൽകേണ്ട വായ്പയാണ് മുൻഗണനാ വിഭാഗ വായ്പയായി പരിഗണി ക്കുന്നത്

തിരുവനന്തപുരത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഓർമിപ്പിച്ചു

പ്രതിബദ്ധത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിലും വർധിക്കുന്ന ആക്രമണങ്ങളിലും ബ്രിക്സ് വിദേശമന്ത്രിമാരുടെ യോഗം ആശങ്ക പ്രകടിപ്പിച്ചു യുഎൻ ചാർട്ടർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണ് ഇത്തരം പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കേണ്ടതെന്ന് ബ്രസീൽ റഷൃ ഇന്തൃ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജൃങ്ങൾ ആവശൃപ്പെട്ടു

അതത് രാജ്യങ്ങാണ് ഭീകരതയ്ക്കെ തിരായ പോരാട്ടത്തിൽ പ്രധാന ഉത്തരവാദിത്തമെന്നും പ്രസ്ത്രീാവനയിൽ പറഞ്ഞു

കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിക്ഷേപക രുടെ വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ആഴ്ചയിൽ രണ്ട് കണ്ണുകൾ നേത്രദാനത്തിലൂടെ ലഭിച്ചാൽ നേത്രപടല അന്ധത ഒരു പരിധിവരെ ഒഴ്ച്ചാക്കാൻ കഴിയും നേത്രദാന പക്ഷാ ചരണം സെപ്റ്റംബർ ്ന്ന് അവസാനിക്കും

മയക്കുമരുന്ന് കേസിലെ കണ്ണികൾ കേരളത്തിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്ന് കെ